സർക്കാർ മുഴുവൻ ശേഷിയും പ്രയോഗിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി

ബംഗളുരുവിന് എട്ട് വിക്കറ്റ് ജയം രണ്ടാം മത്സരത്തിൽ ഡൽഹിക്കെതിരെ ടോസ് നേടിയ കൊൽക്കത്ത ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു

ഹിമാചൽ പ്രദേശിലെ റോഹ്തങ്ങിലാണ് തുരങ്കപാത നിർമ്മിച്ചത് അതിർത്തിയിൽ അടിസ്ഥാന സൌകര്യവികസനത്തിന് സർക്കാർ മുഴുവൻ ശേഷിയും പ്രയോഗിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു റോഡുകൾ പാലങ്ങൾ തുരങ്കങ്ങൾ എന്നിവയുടെ നിർമ്മാണം വലിയ തോതിൽ നടക്കുന്നു ഇതിന്റെ ഗുണങ്ങൾ സാധാരണ ക്കാർക്കും സായുധസേനാംഗങ്ങൾക്കും ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മണാലിയിലെ തെക്കൻ പ്രവേശന കവാടത്തിൽ നിന്ന് ലഹൌൾ സ്പിതിയിലെ വടക്കൻ കവാടത്തിലേക്ക് പ്രധാനമന്ത്രി ദേശീയപാതാ തുരങ്കത്തിലൂടെ സഞ്ചരിച്ചു ്മൂണാലിയിലേക്ക് തുരങ്കത്തിലൂടെയുള്ള എച്ച് ആർ ടി

സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ സുരക്ഷയെക്കാൾ വലുതായി മറ്റൊന്നുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു അടൽ ജിയുടെയും ഹിമാചൽ പ്രദേശിലെ ജനങ്ങളുടെയും സ്വപ്നം പൂർത്തീകരിച്ചതിനാൽ ഇന്ന് ചരിത്രപരമായ ദിവസമാണ് അതിർത്തി പ്രദേശങ്ങളിലെ ഗതാഗതബന്ധം രാജ്യത്തിന്റെ സുരക്ഷയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

രോഗമുക്തി നേടുന്നവരുടെ എണ്ണത്തിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു

മരണനിരക്ക് ഏറ്റവും കുറഞ്ഞ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ

രോഗബാധിതരുടെ എണ്ണത്തിൽ മഹാരാഷ്ട്രയാണ് ഇപ്പോഴും മുന്നിൽ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചാൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കർശന നടപടിയെടുക്കും പ്രതിപക്ഷം സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു അതേസമയം പ്രതികളിലാരെയും കേസിൽ നിന്ന് ഒഴിവാക്കില്ലെന്നും സർക്കാർ അത് ക് അംഗീകരിക്കില്ലെന്നും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആവർത്തിച്ചു

ജി പി ഹിതേഷ് ചന്ദ്ര അക്ടിസ്റ്റ്തി ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി ്രിഅ്പനീഷ് അവസ്തി എന്നിവർ സന്ദർശിച്ചു

കോവിഡ് പശ്ചാത്തലത്തിൽ നടത്തുന്ന പരീക്ഷയ്ക്കാ യി വൻ സജ്ജീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പരീക്ഷാ നടത്തിപ്പ്

എസ് സി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് യാത്രാസൌകരൃം ഒരുക്കുന്നതിനായി ഡൽഹി മെട്രോ സർവീസുകൾ നാളെ രാവിലെ ആറിന് സർവീസ് ആരംഭിക്കും ടെർമിനൽ സ്റ്റേഷനുകളിൽ നിന്ന് എല്ലാ പാതകളിലും ഡൽഹി മെട്രോ സർവീസ് നടത്തും

രോഗമുക്തരുടെ എണ്ണത്തിൽ ഏറ്റവും വലിയ വർധനയാണ് സംസ്ഥാനത്ത് ഇന്ന് രേഖപ്പെടുത്തിയത്

നിർദേശങ്ങൾ ലംഘിക്കുന്നവർക്ക് പിഴ കൂട്ടേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി അകലം പാലിക്കണം

മുരളീധരൻ സ്വയംപര്യാപ്തവും കൂടുതൽ ലാഭം കിട്ടുന്നതുമായ അവസ്ഥയിലേക്ക് കർഷകരെ കൊണ്ടുപോകാൻ ലക്ഷ്യമിടുന്നവയാണ് കാർഷിക ബില്ലുകൾ ഉല്പാദിപ്പിക്കുന്ന വിളകൾക്ക് നൃായവില കിട്ടേണ്ടത് കർഷകർക്കാണെന്നും ഇടനിലക്കാർക്കല്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

ഡി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മഹാസഖൃത്തിലെ സീറ്റുകൾ സംബന്ധിച്ച് ധാരണയായി

ഡി വി ഐ

എം

ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു

കേന്ദ്ര ജൽശക്തി മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവ ത്ത് പദ്ധതി ഉദ്ഘാടനം ചെയ്തു

കൂട്ടായ ശ്രമങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തിക്കും എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് ജൽ സഹേലി അഥവാ ജലത്തിന്റെ കൂട്ടുകാർ എന്നറിയപ്പെടുന്ന ഈ സ്ത്രീകൾ മധ്യപ്രദേശിലെ ഛത്തർപൂർ ജില്ലയിലെ ഭേൽഡ ഗ്രാമത്തിൽ നിന്നുള്ള നൂറിലധികം സ്ത്രീകളാണ് സന്നദ്ധ സംഘടനയുള്ട്ടിയും വനം വകുപ്പിന്റെയും സഹായത്തോടെ ജീല്ദാ്ർലഭ്യത്തിനു പരിഹാരം കണ്ടത് പർവ്വതത്തിലൂടെ കനാൽ ഉണ്ട്ാക്കി അതിലൂടെ മഴവെള്ളം തങ്ങളുടെ ഗ്രാമത്തില്ലു വറ്റി വരണ്ട കുളത്തിൽ എത്തിച്ചാണ് സ്ത്രീകൾ വ്വിജയ്ക്കൊടി നാട്ടിയത്

ഇതു സംബന്ധിച്ച് ആഭ്യന്തര ആരോഗ്യ മന്ത്രാലയങ്ങൾ ഉൾപ്പെടെയുള്ളവയുമായി ചർച്ച നടത്തുകയാണ്